രാജ്യങ്ങളായിരിക്കും വരും കാലത്ത് ശോഭിക്കുകയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതുച്ചേരിയിൽ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കമിട്ടു

എസ്

പുതുച്ചേരിയിലെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കമിട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നല്ല ആരോഗൃമുണ്ടെങ്കിലേ സമൃദ്ധി ഉണ്ടാകൂ കഴിഞ്ഞ ഏഴ് വർഷങ്ങളാർച്ചി സൌഖ്യവും കായികക്ഷമതയും വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര് സർക്കാർ ശ്രമിക്കുന്നതെന്നും പ്രധാനമന്ത്രി വൃക്തുമാ്ക്കി

മികച്ച ഗതാഗത മാർഗ്ഗങ്ങൾ അതിന് ഊർജ്ജമേകുമെന്നും ശ്രീ മോദി പറഞ്ഞു

പുതുച്ചേരിയുടെ വികസനത്തിനായി കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കാരയ്ക്കലിലെ ജിപ്മർ മെഡിക്കൽ കോളേജിലെ പുതിയ കെട്ടിടത്തിനും പുതുച്ചേരി ജിപ്മറിലെ രക്തബാങ്കിനും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു പുതുച്ചേരിയിലെ തുറമുഖ വികസന പദ്ധതി ഇന്ദിരാഗാന്ധി സ്പോർട്സ് സമുച്ചയത്തിലെ സിന്തറ്റിക് ട്രാക്ക് എന്നിവയ്ക്കും ശ്രീ നരേന്ദ്ര മോദി തറക്കല്ലിട്ടു

എണ്ണായിരം കോടി മുതൽ മുടക്കി നിർമ്മിക്കുന്ന ആയിരം മെഗാവാട്ട് ശേഷിയുള്ള നെയ്വേലി നവ താപോർജ്ജ വൈദ്യുത പദ്ധതിക്കും പ്രധാനമന്ത്രി തുടക്കമിടും

സാമൂഹിക ക്ഷേമത്തിനും യുവാക്കളുടെ ശാക്തീകരണത്തിനും മന്നത്ത് പദ്മനാഭൻ നൽകിയ സംഭാവനകൾ വലുതാണെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു അദ്ദേഹത്തിന്റെ ആശയങ്ങൾ എപ്പോഴും പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു

പരമേശ്വരൻ അനുസ്മരണ പ്രഭാഷണത്തിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും

തിരുവനന്തപുരം നഗരത്തിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ആയിരം പൊലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷാ ജോലികൾക്കായി നിയോഗിച്ചിട്ടുള്ളത്

അടുത്ത രണ്ട് ദിവസങ്ങളിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളുമായി ക്രിയാത്മക ചർച്ചകൾ നടത്താമെന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

ഈ നീക്കം ഉപഭോക്താക്കളുടെ സൌക്ടര്യം കൂടുതൽ വർദ്ധിപ്പിക്കുമെന്നും ഉപഭോഴ്ക്ക്ത്യ് സേവനങ്ങളുടെ ഗുണനിലവാരവും കാരൂക്ഷമതയും ഉയർത്തുമെന്നുമാണ് പ്രതീക്ഷ ഇതോടെ ആർ ്ബി ഐക്ക് പൊതുമേഖലാ ബാങ്കുകൾക്കൊപ്പം സ്വകാര്യ മേഖലാ ബാങ്കുകൾക്കും ഗവൺമെന്റ് ഇടപാടുകൾ നടത്തുന്നതിന് അധികാരം നൽകാവുന്നതാണ്

ഈ സാമ്പത്തിക വർഷത്തെ പ്രധാന വിളകളുടെ ഉത്പാദനത്തിന്റെ പ്രതീക്ഷിത കണക്കും കൃഷി മന്ത്രാലയം പുറത്തുവിട്ടു കാർഷികമേഖലയിലെ സമഗ്ര നവീകരണം ദീർഘകാലാടിസ്ഥാനത്തിൽ രാജ്യത്തിന് ഗുണം ചെയ്യുമെന്നും മന്ത്രാലയം അഭിപ്രായപ്പെട്ടു

കേരളം മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നും വരുന്ന യാത്രക്കാർക്ക് തമിഴ്നാട്ടിൽ ഏഴ് ദിവസത്തെ ഹോം ക്വാറന്റൈൻ നിർബന്ധമാക്കി

വിനോദ സഞ്ചാരം പ്രധാന വരുമാന മാർഗ്ഗമായ ഗ്രീസ് സ്പെയിൻ തുടങ്ങിയവ സർട്ടിഫക്കറ്റ് നിർബന്ധമാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കേണ്ടതില്ല എന്ന നിലപാടിലാണ്

സ്വയം പര്യാപ്ത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്കുള്ള മറ്റൊരു ചുവടുവയ്പ്പാണ് തദ്ദേശ്യീയ് കളിപ്പാട്ട പ്രദർശനം

വിശദാംശങ്ങളുമായി കിരൺശങ്കർ

എന്നാൽ അനുയോജ്യമായ കാലാവസ്ഥ പ്രധാനമത്സരങ്ങൾ നടത്തിയുളള പരിചയം മികച്ച വേദികൾ എന്നിവയാണ് ബ്രിസ്ബെയ്നെ മുൻഗണന നല്കുന്നത്

ഉത്തേജക മരുന്ന് ഉപയോഗം തടയുന്നത് ലക്ഷ്യമിട്ടുളള പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതിൽ അന്താരാഷ്ട്ര ഭാരോദ്ധഹ്ന ഫെഡറേഷൻ പരാജയപ്പട്ടാലാവും നടപടി സ്വീകരിക്കൂക്പ്പ് കമ്മിറ്റി മുന്നോട്ടു വച്ച പരിഷ്കാരങ്ങൾ നട്പ്പാക്കാൻ ഭാരോദ്ധഹന ഫെഡറേഷൻ തയ്യാറാവുന്നില്ലെന്നും സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമാവുകയാണെന്നും ഒളിമ്പിക് കമ്മിറ്റി അധൃക്ഷൻ ചൂണ്ടിക്കാട്ടി

പോയിന്റ് പട്ടികയിൽ ആറും ഏഴും സ്ഥാനത്ത് നിൽക്കുന്ന ഇരുടീമുകളുടെയും പ്ളേഓഫ് സാദ്ധ്യതകൾ അവസാനിച്ചിരുന്നു

സ്വർണ്ണവില കുറഞ്ഞു

പാചകവാതക വില വർദ്ധിച്ചു

കഴിഞ്ഞ മാർച്ചിൽ കോവിഡ് വ്യാപനത്തെ തുടർന്ന് രാജ്യത്ത് സാധാരണ ട്രെയിനുകളുടെ സർവ്വീസ് താൽക്കാലികമായി നിർത്തിയിരുന്നു